പ്രധാനമന്ത്രി നരേന്ദ്ര മോദി രാജ്യത്തെ കോവിഡ് സ്ഥിതിയും വാക്സിൻ യജ്ഞത്തിന്റെ പുരോഗതിയും വിലയിരുത്തി

രാജ്യത്ത് കോവിഡ് വാക്സിൻ കുത്തുറിയ്പ്പ് പുരോഗമിക്കുന്നു

കേരളത്തിൽ ഇടതുമുണ്ണീ ്സർക്കാർ തുടർ ഭരണത്തിലേക്ക്

തമിഴ്നാട്ടിൽ ഡി

അസ്സമിലും പുതുച്ചേരിയിലും എൻ ഡി എ ഭരണത്തിലേക്ക്

ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് അധികാരം നിലനിർത്തി

ചെയർമാനുമായ ആർ ബാലകൃഷ്ണപിള്ള് അന്തരിച്ചു

ഐ

ഡൽഹി ക്യാപിറ്റൽസും ജേതാക്കൾ

മെഡിക്കൽ ഓക്സിജന്റെയും കോവിഡ് ചികിത്സക്കുള്ള ഔഷധങ്ങളുടെയും ലഭ്യത ആരോഗ്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി പ്രധാനമന്ത്രി ചർച്ച ചെയ്തു കോവിഡ് പ്രതിരോധത്തിന് ആവശ്യമായ മനുഷ്യ വിഭവശേഷി ശ്രീ

ഓക്സിജൻ ലഭ്യമാകുന്ന കിടക്കകൾ കൂടുതലായി സ്ഥാപിക്കാൻ സംസ്ഥാനങ്ങളോട് അദ്ദേഹം ആവശ്യപ്പട്ടു

ഡി

നിലവിലെ സഭയിൽ ഒരംഗമുണ്ടായിരുന്ന ബി ജെ

തിരുവനന്തപുരം കണ്ണൂർ ആല്പ്പുഴ്ചൂകൊല്ലം ജില്ലകളിൽ വൻവിജയമാണ് എൽ

എറണാകുളം മലപ്പുറം വയനാട് ജില്ലകളിലാണ് യു ഡി എഫിന് നേട്ടം

ജെ പി ഇത്തവണ ശക്തമായ മത്സരം കാഴ്ചവച്ചെങ്കിലും ഒരു സീറ്റിലും ജയിക്കാനായില്ല പാലക്കാട് ഇ ശ്രീധരനും നേമത്ത് കുമ്മനം രാജശേഖരനും തൃശൂരിൽ സുരേഷ് ഗോപിയും വോട്ടെണ്ണലിന്റെ ഏറെക്കുറെ അസാനഘട്ടം വരെ മുന്നിലെത്തിയിരുന്നു

ജെ

യുടെ ഒ രാജഗോപാൽ ജയിച്ച തിരുവനന്തപുരത്തെ നേമം മണ്ഡലത്തിൽ സി

പാലക്കാട്ടെ വാശിയേറിയ പോരാട്ടത്തിന്റെ ഒടുവിൽ മെട്രോമാൻ ഇ

വോട്ടെണ്ണലിന്റെ തുടക്കവേളയിൽ ലീഡ് ചെയ്ത സുരേഷ് ഗോപി കുമ്മനം രാജശേഖരൻ എന്നിവരും പരാജയപ്പെട്ടു ഏറെ വിജയ പ്രതീക്ഷ പുലർത്തിയിരുന്ന ബി ജെ

പൂഞ്ഞാർ ഇക്കുറി പി

അദ്ദേഹം എൽ ഡി

മന്ത്രിമാരിൽ ജെ മെഴ്സികുട്ടിയമ്മ മാത്രമാണ് പരാജയപ്പെട്ടത് കുണ്ടറയിൽ യു ഡി എഫിലെ പി

എഫിലെ പത്മജ വേണുഗോപാൽ കെ

ജെ

വിജയ പ്രതീക്ഷ വെച്ച കഴക്കൂട്ടത്ത് പാർട്ടി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്തായി

ജെ പി നേതാവ്പി

കോട്ടയം കാഞ്ഞിരപള്ളിയിൽ മത്സരിച്ച ബി ജെ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എം കെ

ഭരണത്തിനെതിരെയാണ് തമിഴ് നാട്ടിലെ ജനവിധി കോൺഗ്രസ് സിപി ഐഎം സി

ഡി എ എന്നീ കക്ഷികളുമായി സഖ്യമുണ്ടാക്കിയാണ് ഡി എം

പാർട്ടി അധ്യക്ഷൻ എം

പനീൽസെൽവവും വിജയിച്ചു

ജെ പി നേതൃത്വം നൽകുന്ന എൻ

എ യ്ക്ക് തുടർഭരണം

കെ മൂന്നിടത്താണ് മുന്നിൽ

എതിരാളി മുൻ ടി എം സി നേതാവും ബി ജെ

ജെ

നേതൃത്വത്തിലുള്ള എൻ ഡി എ യുമായി ശക്തമായ പോരാട്ടം നടത്തിയ ടി എം സി

എസ് ആർ കോൺഗ്രസിലെ എം

അന്തരിച്ച മന്ത്രി ഹാജി ഹുസൈൻ അൻസാരിയുടെ മകനാണ് അദ്ദേഹം

കഴിഞ്ഞ രാ്ട്രതിയിലും തുടർന്ന വോട്ടെണ്ണലിന്റെ ഫലം ഇന്ന് ഉച്ചയോളട്ട് പ്രെഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ ഉത്തർപ്രദേശിൽ നാല് ഘട്ടങ്ങളിലായാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നത്

ഇ്രുരാജ്യങ്ങളും പങ്കിടുന്ന ബഹുമുഖവും തന്ത്രപരവുമായ ബന്ധം വളർത്തുന്നതിനും പരസ്പര താത്പര്യമുള്ള മേഖലാ ആഗോള വിഷയങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഉച്ചകോടി അവസരമൊരുക്കും

ജയശങ്കർ ഇന്ന് ലണ്ടൻ സന്ദർശനം ആരംഭിക്കും സന്ദർശനം നാല് ദിവസം നീണ്ടുനിൽക്കും അതിഥി രാജ്യമായാണ് ഇന്ത്യയെ യോഗത്തിന് ക്ഷണിച്ചിട്ടുള്ളത് ബ്രിട്ടൻ യു

കൊറോണ മഹാമാരിയെ നേരിടാനുള്ള വഴികൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും യോഗത്തിൽ ചർച്ചാവിഷയമാകും

ഒസാമ ബിൽലാദനെ അമേരിക്കൻ സുരക്ഷാ സേന വധിക്കാൻ ഇടയായ തെരച്ചിലിനെക്കുറിച്ച് അനുസ്മരിക്കുകയായിരുന്നു അദ്ദേഹം

ബാലകൃഷ്ണപിള്ള അന്തരിച്ചു

പുലർച്ചെ കൊട്ടാരക്കരയിലെ സ്ഥകാര്യ ആശുപത്രിയിലായിരുന്നു അന്തൃം

കേരളാ കോൺഗ്രസ് സ്ഥാപക ജനറൽ സെക്രട്ടറിയാണ്

എക്സൈസ് ഗതാഗതം വൈദ്യുതി വകുപ്പുകളുടെ ചുമതല വഹിച്ചിട്ടുള്ള അദ്ദേഹം കേരളാ കോൺഗ്രസ് ബി ചെയർമാൻ കൂടിയായിരുന്നു

എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും ജേതാക്കൾ

അഹമ്മദാബാദിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് ഏഴ് വിക്കറ്റ് ജയം